വളരുന്നതിന് എല്ലാവരും കൂട്ടായി യത്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എന്നാൽ ഈ ലക്ഷ്യം പെട്ടെന്നുള്ള സംഭവ വികാസമല്ലെന്നും ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗ് യോഗത്തിൽ സാമ്പത്തിക വികസനം സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ധരും സംരംഭകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ശ്രീ

ഒട്ടേറെ സാധ്യതകളുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും ഒരു രാജ്യമെന്ന ചിന്തയിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു വളർച്ചാ നിരക്ക് അടക്കം ഇന്ത്യൻ സാമ്പത്തിക രംഗം നേരിടുന്ന പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്തു കൃഷി ആരോഗ്യപരിപാലനം എന്നിവയ്ക്കു പുറമെ വ്യവസായം നിക്ഷേപം നിർമ്മാണം വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ നിന്നുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിതിൻ ഗഡ്കരി നരേന്ദ്രസിംഗ് തോമർ പീയുഷ് ഗോയൽ നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ സി ഇ ഒ അമിതാഭ് കാന്ത് വിവിധ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിമാർ തുടങ്ങിയവരും സംബന്ധിച്ചു

പാർട്ടി പ്രതിനിധികളുമായി മന്ത്രി ബജറ്റിന് മുന്നോടിയായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ വിശ്വാസ പ്രകടനം ബിജെപി നേതാക്കളുമായി ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്നലെ ധനമന്ത്രി നാല് തവണ ബജറ്റിനെ സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നു ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ ജനറൽ സെക്രട്ടറിമാരായ ബി എൽ സന്തോഷ് ഭൂപേന്ദ്രർ യാദവ് അരുൺ സിങ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പാർട്ടിയിലെ വിവിധ ഘടകങ്ങളുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ ആശയവിനിമയം നടത്തിയതായി ശ്രീ

നരേന്ദ്രമോദി ഗവൺമെന്റ് ജനക്ഷേമത്തിനായാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അടുത്ത മാസം ഒന്നിന് അവതരിപ്പിക്കും

സംഘത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ഗവൺമെന്റ് തന്നെയാണ് സന്ദർശനം ഒരുക്കിയത് ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ തദ്ദേശ ഭരണകൂടം സ്വീകരിച്ച നടപടികൾ നേരിൽക്കണ്ട് മനസ്സിലാക്കുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശ്യമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

സന്ദർശനത്തിനിടെ സംഘം സംസ്ഥാനത്തെ പൊതു സമൂഹവുമായും സംവദിക്കുമെന്നും ശ്രീ രവീഷ്കുമാർ വ്യക്തമാക്കി

യു വിലെ അക്രമങ്ങൾ ഗവൺമെന്റ് സ്പോൺസർ ചെയ്തതാണെന്ന കോൺഗ്രസ് ആരോപണം അടിസ്ഥാനർഹിതമെന്ന് ബി

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ട മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാപ്പ്ദേക്കർ സർവ്വകലാശാലയിലെ രജിസ്ട്രേഷൻ നടപടികൾ ത്രടസ്സപ്പെടുത്തിയതും സെർവർ നശിപ്പിച്ചതും കോൺഗ്രസ് ഇടതു സംഘ്ടനകളിൽപ്പെട്ട വിദ്യാർത്ഥി യൂണിയനുകളാണെന്ന് തുറന്നടിച്ചു സർവ്വകലാശാലയുടെ അക്കാദമിക മികവ് തകർക്കുക കൂടിയാണ് അവരുടെ ലക്ഷ്യമെന്ന് ശ്രീ

കാമ്പസിൽ അക്രമം അഴിച്ചുവിട്ടവരുടെ മുഖംമൂടി പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി എടുത്തുപറഞ്ഞു

യു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനവ വിഭവശേഷി വികസന സെക്രട്ടറി അമിത് ഖാരേ ഇന്നലെ ന്യൂഡൽഹിയിൽ സർവകലാശാലയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി

യു അദ്ധ്യാപക യൂണിയനെ പ്രതിനിധാനം ചെയ്ത് പ്രൊഫ

ലോബിയാൽ ജെ

യു സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രസിഡന്റ് ഐഷേ ഘോഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് വീണ്ടുമൊരു ചർച്ചയ്ക്ക് അദ്ദേഹം വിദ്യാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട്

സെൻസസുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനാണ് മൊബൈൽ നമ്പർ ശേഖരിക്കുന്നതെന്നും മറ്റൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കില്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു ടെലഫോൺ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സൈക്കിൾ സ്കൂട്ടർ മോട്ടോർ സൈക്കൂിൾ കാർ ജീപ്പ് വാൻ റേഡിയോ ട്രാൻസിസ്റ്റർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ് എന്നിവ ഉണ്ടോ എന്നും രേഖപ്പെടുത്തും വെളിച്ചത്തിന്റെ പ്രധാന ്യ്യ്യാതസ്സ് മലിനജല സംസ്ക്കരണം അടുക്കളയുടെ ലഭ്യത പ്പാപ്പകുത്തിനുള്ള പ്രധാന ഇന്ധനം എൽ

രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും വിപുലീകരിക്കാനും നവീകരിക്കാനും പോവുകയാണ് പ്രതിവർഷം ഏഴു കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാകുന്ന വിധത്തിൽ ഡൽഹി വിമാനത്താവളം വികസിക്കുകയാണ് ഇതിനൊപ്പം മുംബൈ ഹൈദരാബാദ് തുടങ്ങിയ മറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളങ്ങളും ഗതാഗതവളർച്ചയ്ക്ക് അനുസരിച്ച് സജ്ജമാകുമെന്ന് മന്ത്രി പറഞ്ഞു

നാഷണൽ ഡി

ന്യൂസ് ഡി

ഇന്ത്യ എന്നീ ദൂരദർശൻ ചാന്രലുകളിലും ആകാശവാണിയുടെ മീഡിയം വേവ് എഫ്

കഴിഞ്ഞവർഷം രാജ്യത്താകെ എട്ടര് ലക്ഷം വിദ്യാർത്ഥികൾ റേഡിയോയിലും ടി

ചൈനയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ മികച്ചു പങ്കാളിത്തം ആഘോഷത്തിന്റെ മാറ്റ് കൂട്ടി പ്രവാസികളെ മാതൃരാജ്യവുമായി കൂട്ടിയിണക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത അംബാസിഡർ വിക്രം മിസ്റി അറിയിച്ചു

ഉദ്ഘാടന ചടങ്ങ് ഗ്രിഭീർമാ്ക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി ഗെയിംസ് സി ഇ

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു കായിക രംഗത്തെ പ്രമുഖർ തുടങ്ങീയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും